പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് ക്വൈകിട്ട് എൻഡിഎ യുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും കോൺഗ്രസ് പ്രവർത്തകസമിതിയോഗും ന്യൂഡൽഹിയിൽ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ സിപിഐഎം സംസ്ഥാനകമ്മിറ്റി യോഗം അടുത്ത വെള്ളി ശനി ദിവസങ്ങ ളിൽ ശബരിമലവിഷ്യത്തിൽ ഇടത് ഗവൺമെന്റ് നിലപാടിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്ര ട്ടറി കോടിയ്യേരി ബാലകൃഷ്ണൻ എൽഡിഎഫ് ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികം ഇന്ന് നിയമവിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

രാഷ്ട്രപതിഭവനി ലെത്തിയ അവർ പുതുതായി തെരഞ്ഞെടുത്ത എം പിമാരുടെ പട്ടിക അദ്ദേഹത്തിന് കൈമാറി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശം ഉന്നയിക്കും ഇന്ന് വൈകിട്ട് അഞ്ചിന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ എൻഡിഎ യുടെ പുതിയ എംപിമാർ യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ പാർല മെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും

നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂജറാത്തിലെത്തി അമ്മയുടെ അനുഗ്രഹം തേടിയശേഷം മടങ്ങിയെത്തും

കോൺഗ്രസ് പ്രവർത്തകസമിതിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു പാർട്ടി പ്രസിഡന്റ് രാഹുൽഗാന്ധിയുടെ അധ്യക്ഷത യിൽ ചേരുന്ന യോഗത്തിൽ സ്റ്റാ്ണിയാഗാന്ധി ഡോ മൻമോ ഹൻസിംഗ് എ കെ ആന്റണി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെ ടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരി ച്ചടിയുടെ കാരണങ്ങൾ യോഗം വിലയിരുത്തും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽഗാന്ധി യോഗത്തിൽ രാജി സന്നദ്ധത അറിയിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ നിർദ്ദേശം പ്രവർത്തകസമിതി തള്ളിക്കളയും പാർട്ടിക്ക് പരാജയം നേരിട്ട സംസ്ഥാനങ്ങളിലെ പിസിസി നേതാക്കളുടെ രാജിയും പ്രവർത്തകസമിതിയിൽ ചർച്ചാവിഷയമാകും കോൺഗ്രസിന്റെ പരാജയത്തിന് രാഹുൽഗാന്ധിയല്ല ഉത്തരവാ ദിയെന്ന് കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗം ഉമ്മൻചാണ്ടി പറഞ്ഞു

രാഹുലിന്റെ നേതൃത്വം കോൺഗ്രസിന് അനിവാര്യ മായ ഘട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമല പരാജയ കാരണമായെന്ന് എൽഡിഎഫും ബാല കൃഷ്ണപിള്ളയും വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വേണ്ടത്ര മുന്നൊ രുക്കങ്ങൾ നടത്തിയില്ലെന്ന് മുതിർന്ന പാർട്ടി നേതാവ് പ്രൊഫ കെ വി തോമസ് പറഞ്ഞു രാഹുൽഗാന്ധിയും പ്രിയ്ക്കയും ശക്തമായി പ്രചാരണം നടത്തിയെങ്കിലും വോട്ടാക്കി മാറ്റാൻ സംഘടനാ സംവി ധാനം കോൺഗ്രസിനുണ്ടായില്ലെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരു വാർത്താചാനലിനോട് പറഞ്ഞു വോട്ടെണ്ണലിനെ തുടർന്നുണ്ടായ ആക്രമസംഭവങ്ങളോടനുബ ന്ധിച്ച് വടകര മേഖലയിൽ രണ്ടുദീവസ്ത്തെ നിരോധനാജ്ഞ നില വിൽ വന്നു

യുഡിഎഫ് യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും ലോക്സഭാ തെർഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയസാഹചര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചേരും മണ്ഡലം കമ്മിറ്റികളുടെ റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും ഇടതുപക്ഷത്തിന് സ്ഥിരമായി ലഭിച്ച പരമ്പരാഗത വോട്ടുകൾ നഷ്ടമായെന്ന് ഇന്നലെ ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്ര ട്ടറിയറ്റ് വിലയിരുത്തിയിരുന്നു വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വലതുപക്ഷ ശക്തികൾ വിജയിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നതായി സെക്രട്ടറിയറ്റ് അറിയിച്ചു

നരേന്ദ്രമോദി ഗവൺമെന്റ് തുടർന്നാലുണ്ടാകുന്ന അപകടം സമൂഹത്തിൽ ശരിയായി പ്രചരിപ്പിക്കുന്നതിൽ ഇടതുപക്ഷം വിജ യിച്ചെങ്കിലും യുഡിഎഫിനാണ് അതിന്റെ നേട്ടമുണ്ടായതെന്ന് സെക്രട്ടറിയറ്റ് വ്യക്തമാക്കി ശബരിമല വിഷയത്തിൽ ഇടത് ഗവൺമെന്റ് നിലപാടിൽ തെ റ്റ് സംഭവിച്ചിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന്റ് സ്ക്രെട്ടറി കോടി യേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു വിശ്വാസികളെല്ലാം ഇട തു പക്ഷത്തിനെതിരായിരുന്നുവെന്ന വിലയിരുത്തൽ ശരിയല്ല വിശ്വാസികൾ എതിരായിരുന്നെങ്കിൽ ഇട്ടതുപ്പക്ഷത്തിന് ഇത്രയും വോട്ട് കിട്ടില്ലായിരുന്നുവെന്നും കോടീയേരി പിന്നീട് തിരുവന ന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പ്പറഞ്ഞു

എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ടവർ എതിരായി പ്പോട്ടുചെയ്തിട്ടുണ്ടാവാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ബിജെപിയെ തോൽപിക്ക ണമെന്ന ഇടതു നിലപാടിനൊപ്പം കോൺഗ്രസിനേ കേന്ദ്രത്തിൽ ബിജെപിയെ തടഞ്ഞു നിർത്താനാവൂ എന്ന പ്രചാരണവും കേര ളജനതയെ സ്വാധീനിച്ചു അതിന്റെ ഫലമാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടായ പരാജയം എന്നാൽ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഉപ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു മുന്നണി ശക്ത മായി തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയെ സംസ്ഥാനത്ത് വിജയിപ്പിക്കരുതെന്ന ഇടതുനിലപാട് വിജയത്തി ലെത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു

എൽഡിഎഫിന് ഇത് കാര്യമായി ദോഷം വരുത്തിവെച്ചെന്ന് അദ്ദേഹം ഒരു മലയാളം വാർത്താ ചാനലിനോട് പറഞ്ഞു ശബരിമല വിഷയത്തിൽ എൻഎസ്എസ് നിലപാടായിരുന്നു ശരിയെന്ന് ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി വൃശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടാണ് എൻ എസ് എസ് കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസ്ം സംരക്ഷി ക്കാതെ ശബരിമല പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും എത്ര ശക്തിപ്രകടിപ്പിച്ചാലും ആ വികാരം മറികടക്കാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ന്യൂനപ ക്ഷങ്ങൾക്ക് സിപിഐഎമ്മിലും എൽഡിഎഫിലും വിശ്വാസം നഷ്ടമായെന്നും ബാലകൃഷ്ണ്പിള്ള പറഞ്ഞു രാജ്യം വിവിധ ത്ലങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെന്ന് കരസേനാ മേധാവി ജ്നറൽ ബിപിൻ റാവത്ത് പറഞ്ഞു

ഏഴിമല്പനാവിക അക്കാദമിയിൽപരിശീലനം പൂർത്തിയാ ക്കിയ കേഡ്റ്റുകളുടെ പാസ്സിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീ കരിച്ച് സംസാരിക്കുകയായിരുന്നു കരസേനാമേധാവി

നാല് വർഷ ബി ടെക് ആദ്യമായി പൂർത്തിയാക്കി ശ്രീലങ്കയിലെ മൂന്ന് കേഡറ്റു കളും ഇതിൽ പെടും റഫാൽ പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു കേസ് കരാർ നടപടികളെ ബാധിക്കുമെന്നും കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ച വാദത്തിൽ കേന്ദ്രം അറിയിച്ചു ബാലിശമായ ആരോപണങ്ങളാണ് ഹർജികളി ലുള്ളതെന്നും കേന്ദ്രം പറഞ്ഞു റഫാൽ കേസിൽ സുപ്രീംകോടതി വിധിക്കെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി വാദം പൂർത്തിയാക്കി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് അധ്യക്ഷനായ ബെഞ്ച് വിധിപറയാൻ മാറ്റിയി രിക്കുകയാണ് കേസിൽ ഇനിയും വാദങ്ങൾ സമർപ്പിക്കാനുണ്ടെ ങ്കിൽ രേഖാമൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു

ജമാഅത്തൂൽ മുജാഹിദ്ദീൻ ഇന്ത്യ ജമാഅത്തുൽ മുജാഹിദ്ദീൻ ഹിന്ദുസ്ഥാൻ എന്നീ പേരുക ളിലും അറിയപ്പെടുന്ന സംഘടനയാണിത്

എഫ് ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികം ഇന്ന് നാലാം വർഷത്തിലേക്ക് കടക്കുന്ന ഗ്രവൺമെന്റ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഭൂരിപക്ഷവും നിറവ്റ്റിയതായി മുഖ്യമന്ത്രി പിണ റായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു രാജ്യത്തിന് മാതൃക യായി ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ മൂന്നുവർഷത്തിനിടെ ആവി ഷ്കരിച്ചതായി മാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു തെർഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല നിയമവിദ്യാഭ്യാസം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കോർപ്പറേറ്റുകൾ നിയമങ്ങൾ വൻതോതിൽ തങ്ങൾക്കനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിൽ അവർ വിജയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബാർകൌൺസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തിരു വനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആലുവ എടയാർ സ്വർണ്ണക്കവർച്ച കേസിലെ എല്ലാ പ്രതികളും പിടിയിലായി

കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ എന്നു കരുതുന്ന ബിപിൻ ജോർജ്ജിനെ പൊലീസ് നേരത്തെ പിടികൂടിയിരുന്നു

ഇന്ധനവില ഇന്നും വർധിച്ചു

കോഴിക്കോട് വളയത്ത് സ്ഫോടകവസ്തു ശേഖരം പിടികൂടി

ഇന്നലെ ഒപി മുക്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് രണ്ട് സ്റ്റീൽ ബോബുകളും കണ്ടെടുത്തിരുന്നു

പത്ത് ഘട്ടങ്ങളിലായി പാലം മുറിച്ചുമാറ്റാനാണ് ശ്രമം ആർച്ചുകൾ പൊളിക്കുന്ന ജോലിയാണ് നടക്കുന്നത് കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം റദ്ദാക്കിയിരി ക്കുകയാണ് കോട്ടയം വഴി പോകേണ്ട ദീർഘദൂര ട്രെയിനുകൾ ആലപ്പുഴി വഴി തിരിച്ചുവിടും കോഴിക്കോട് നീലേശ്വരം ഗവ ഹയർസെക്കൻഡറി സ്കൂളിൽ വിദ്യാർഥികൾക്ക് വേണ്ടി പരീക്ഷ എഴുതിയ സംഭവത്തിൽ ആരോപണവിധേയരായ അധ്യാപകർ സമർപ്പിച്ച ജാമ്യപേക്ഷ പരിഗണന കോഴിക്കോട് പ്രിൻസിപ്പൽ കോടതി മറ്റന്നാളേക്ക് മാറ്റി സംഭവത്തിൽ ഇവർക്കെതിരെ ജാമ്യമില്ലാവകുപ്പ് പ്രകാരം കേസെടുത്തെ ങ്കിലും ആരേയും പിടികൂടാനായിട്ടില്ല കോഴിക്കോട് കടപ്പുറത്ത് മാലിന്യം നീക്കാൻ കോർപ്പറേഷൻ നാളെ മെഗാശുചീകരണം നടത്തും രാവിലെ ഏഴ് മുതൽ പത്ത് വരെ ബേപ്പൂർ മുതൽ എലത്തൂർ വരെയാണ് കടലോര ശുചീകര ണം

ടൂറിസം വകുപ്പ് തന്നെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്